അസമിൽ താമസം ഉറപ്പിക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി കേരള ബജറ്റ് ക്ഷേമ ന് പെൻഷനുകൾ വർദ്ധിപ്പിച്ചു

പേർക്ക് തൊഴിൽ നൽകിയതായി കേന്ദ്ര ഗവൺമെന്റ്

പുതിയ നിയമം മേഖലയിൽ കുടിയേറ്റത്തിന് അവസരം ഒരുക്കുമെന്ന ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബോഡോ സമാധാനകരാർ ആഘോഷങ്ങളുടെ ഭാഗമായി അസ്സമിലെ കെക്രജാറിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി അക്രമത്തിന്റെ പാത പിന്തുടരുന്നവർ ബോഡോ യുവാക്കളെപ്പോലെ ആയുധങ്ങൾ ് ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് കടന്നു വരണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

ശുഭ പ്രതീക്ഷകളുടെ പ്രതീകമാണ് മോദി ഗവൺമെന്റെന്നും അദ്ദേഹം ടിറ്ററിലൂടെ പറഞ്ഞു

എൽ

ബേക്കൽ മുതൽ കോവളം വരെയുള്ള ജലപാത ഈ വർഷം ഗതാഗതത്തിനായി തുറക്കും

കൊച്ചി മെട്രോ ജലപാത തുടങ്ങിയവ ഉൾപ്പെടുത്തി കൊച്ചിയിൽ ഏകീകൃത ട്രാവൽ കാർഡ് നടപ്പാക്കും

കാരുണ്യ പദ്ധതി തുടരും സാന്ത്വനം പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കുടുംബവരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയാക്കി ഉയർത്തി കുറഞ്ഞ നിരക്കിൽ കാൻസർ മരുന്നുകൾ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു

മാന്ദ്യവിരുദ്ധ പാക്കേജിലൂടെ സംസ്ഥാന സമ്പദ് ഘടനയെ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങിനിർത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി

ഈ വർഷം നവംബർ മുതൽ സിഎഫ്എൽ ഫിലമെന്റ് ബൾബുകളുടെ വിൽപന നിരോധിക്കും

നാളികേര വികസനത്തിന് കേരം തിങ്ങും കേരളനാട് പദ്ധതി നടപ്പാക്കും

വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽഗാന്ധി ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് ് മുമ്പ് പ്രധാനമന്ത്രിക്കെതിരെ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തെ ഡോ ഹർഷ്വർധൻ വിമർശിച്ചതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായത് തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുകയും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയുമായിരുന്നു

ഹർഷ് വർദ്ധൻ പ്രിക്ടോപിപ്പിച്ചെന്നും ഇത് ലോക്സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾക്കിടയാക്കിയെന്നും കോൺഗ്രസ് ആരോപിച്ചു രാഹൂൽഗാന്ധി പാർലമെന്റിന് പുറത്ത് നടത്തിയ ഒരു പ്രസ്താവനയെ ശ്രീ ഹർഷ് വർദ്ധൻ ഉന്നയിച്ചത് നാളെ നടക്കാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രജ്ഞൻ ചൌധരി പറഞ്ഞു

വ്യവസായ പ്രിമുഖ്രുമായും വ്യാപാര സംഘടനാ പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയ്ക്കുശേഷം മുംബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി ലഘൂകരിച്ച നികുതി സമ്പ്രദായത്തിലേക്ക് നീങ്ങാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി

സിംഗ് രാജ്യസഭയിൽ അറിയിച്ചു

തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനായി രാജ്യത്തെ യുവാക്കളുടെ നൈപുണ്യം വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാൻമന്ത്രി കൌശൽ വികാസ് യോജന

സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ച് വരികയാണ് വൈറസ് ബാധ തടയാൻ സ്വീകരിച്ച തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ് ശ്രീമതി പ്രീതി സുതൻ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരുമായി ഇന്ന് വീഡിയോ കോൺഫറൻസിങ് നടത്തി ആഗോള സാഹചര്യം വിലയിരുത്തിയാണ് വിസാ നിയന്ത്രങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് അവർ അറിയിച്ചു കൊറോണ ബോധ്പത്കരണ പരിപാടികൾ വ്യാപകമാക്കാൻ ശ്രീമതി പ്രീതി സുതൻ സംസ്ഥാനങ്ങൾക്ക് നിർദേശം നൽകി

ചൈനയ്ക്കും ഹോങ്കോംഗിനും പുറമേ സിംഗപ്പൂർ തായ്ലാന്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളിലെ യാത്രക്കാരെയും വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയരാക്കും

ഹർജിയിന്മേൽ നാല് പ്രതികൾക്കും നോട്ടീസ് അയക്കണമെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ആവശ്യം ജസ്റ്റിസ് ഭാനുമതി നിരസിച്ചു